മേഖല സൃഷ്ടിക്കാൻ ഇന്തൃയും വിയറ്റ്നാമും പ്രതിജ്ഞാ ബദ്ധമെന്ന് ഉപരാഷ്ട്രപതി എം

ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഹരിയാനയിലെ രോഹ്ത്തക്കിലും ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലും പഞ്ചാബിലെ ഹോഷിയാർപൂരിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്തു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഹിമാചൽ പ്രദേശിലെ ഷിംലയിലെ പൊതുസമ്മേളന ത്തിൽ പങ്കെടുത്തു

പി സ്ഖ്ചൂം മത്സരിക്കുന്ന അസംഗഢിലും അംബേദ്കർ നഗറിലും കോണ്ട്ര്യസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല

മനേകയുടെ പുത്രൻ വരുൺ ഗാന്ധി യാണ് ഇവിടുത്തെ നിലവിലെ എം

പി യുടെ ചന്ദ്രഭദ്രസിംഗും കോൺഗ്രസിലെ ഡോ

മധ്യപ്രദേശിലെ ഭോപ്പാലാണ് നിർണ്ണായക മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം ഇവിടെ കോൺഗ്രസിലെ ദിഗ് വിജയ് സിംഗിനെ നേരിടുന്നത് ബിജെപി യുടെ പ്രജ്ഞാസിംഗ് താക്കൂറാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുകയാണ്

ഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത് ക്രിക്കറ്റ് താരം ഗൌതം ഗംഭീർ ഗായകൻ മനോജ് തിവാരി എന്നിവരും ഡൽഹിയിൽ മത്സരിക്കുന്നു

കോൺഗ്രസിന്റെ വിജേന്ദർ സിംഗും ബിജെപി യുടെ സിറ്റിംഗ് എം പി രമേഷ് ബിദുരിയും എ എ പിയുടെ രാഘവ് ചാദ്ധയുമാണ് മത്സരരംഗത്ത്

ഉപരാഷ്ട്രപതി വെങ്കയ്യ ന്നായിഡുവിന്റെ വിയറ്റ്നാം സന്ദർശനവേളയിലാണ് തീരുമാനം

തുടർന്ന് ഇരുവരും സംയുക്ത വാർത്ത്ാസമ്മേളനവും നടത്തി വിയറ്റ്നാം ഇന്ത്യയുടെ വിശ്വസ്ത പ്രക്കാളിയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് ജസ്റ്റീസുമാരായ എസ്

ബോബ്ഡെ ഡി

ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ്

മൂന്നംഗ മധ്യസ്ഥ സമിതിയുടെ ആവശ്യ പ്രകാരമാണ് പരമോന്നത കോടതി പ്രശ്നപരിഹാരത്തിന് സമയം നീട്ടിനൽകിയത് സമിതിയുടെ നിർദ്ദേശം രാവിലെ ചേർന്ന കോടതി പരിഗണിക്കുകയായിരുന്നു

സുപ്രീംകോടതിയിലെ മുൻ ജഡ്ജി ഫക്കീർ മുഹമ്മദ് ഇബ്രാഹീം ഖലീഫുള്ളയുടെ നേതൃത്വത്തിൽ ആത്മീയാ ചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചൂ എന്നിവരൂൾപ്പെടുന്ന സമിതിയെയാണ് മധ്യസ്ഥ ചർച്ചയ്ക്കായി നിയോഗിച്ചിരുന്നത്

കോൺഗ്രസിന്റെ അഭിപ്രായമല്ല വൃക്തിപരമായ അഭിപ്രായമാണ് പിട്രോഡ നടത്തിയതെന്ന് പാർട്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു സിഖ് കൂട്ടക്കൊലയ്ക്ക് ഇരയായവരുടെ കുടും ബാംഗങ്ങൾക്കൊപ്പം പാർട്ടി എന്നും നിലകൊള്ളുമെന്നും പ്രസ്താവനയിൽ വൃക്തമാക്കുന്നു

എയർ ഇന്ത്യ ആസ്ഥാനത്ത് നടന്ന അവലോകനയോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് വിമാനം പുറപ്പെടും മുമ്പ് ടിക്കറ്റെടുക്കുന്നവർക്ക് എയർ ഇന്തൃ നൽകുന്ന ഈ സൌകരൃം വ്യോമയാന മേഖലയിൽ ഒരു വൻ കുതിച്ചുചാട്ടമായിരിക്കുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

റഷ്യയുമായുള്ള ആണവകരാർ പൂർണ തോതിൽ നടപ്പാക്കില്ലെന്ന് ഇറാൻ വൃക്തമാക്കിയ സാഹചരൃത്തിലാണ് അമേരിക്കയുടെ പുതിയ നിലപാട്

ആക്രമണത്തെ തുടർന്ന് അഭയാർത്ഥികളേയും കുടിയേറ്റ ക്കാരേയും ലക്ഷ്യമിട്ട് നാടുകടത്തൽ പോലുള്ള അനീതി ഇവരോട് കാണിക്കുന്നതായും ഈ പ്രവൃത്തികളിൽ ഉത്കണ്ഠാകുലരാണെന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകൾ സംയുക്തമായി ശ്രീലങ്കൻ ഗവൺമെന്റിനെ അറിയിച്ചു

ഈ കാലഘട്ടത്തിലാണ് ഗർഭിണികളിലെ വിളർച്ചയ്ക്ക് ് ഫോളിക് ആസിഡ് ഫലപ്രദമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്

ശ്രീമതിയുടേയും സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ സുധാകരന്റേയും പോളിംഗ് ഏജന്റുമാരാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത്

സംസ്ഥാന ശിശുക്ഷേമസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രണ്ടാമത്തെ ബാലചലച്ചിത്രമേളയാണിത് കൈരളി നിള ശ്രീ കലാഭവൻ ടാഗോർ എന്നീ തീയറ്ററുകളിലാണ് പ്രദർശനം

എൽ ക്രിക്കറ്റിൽ രണ്ടാം യോഗൃതാ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു വിശാഖ പട്ടണത്താണ് മത്സരം ടോസ് നേടിയ ചെന്നൈ ഡൽഹിയെ ബാറ്റിംഗിനയച്ചു ഇന്ന് നടക്കുന്ന മത്സരത്തിൽ വിജയിയാകുന്ന ടീം ഞായറാഴ്ച ഹൈദ്രാബാദിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും

ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന മത്സരത്തിലാണ് ഇന്തൃൻ വിജയം അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിലെ അടുത്ത മത്സരം തിങ്കളാഴ്ച നടക്കും